പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തും

ക്രിമനൽ കേസ് അന്വേഷണത്തിനിടെ പൊലീസിന് സ്ഥാവര സ്വത്തുക്ക്ൾ പിടിച്ചെടുക്കാൻ അവകാശമില്ലെന്ന് സുപ്രീംകോടതി

പാകിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ മിക്കിയിടങ്ങളിലും ചെറിയ തോതിൽ ഭൂമി കുലുങ്ങി

ഇരുവരും വിവിധ ഉഭയകക്ഷി വിഷയങ്ങളെക്കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യും

തുടർന്ന് ഗാന്ധി സൌരോർജ്ജ പാർക്ക് അദ്ദേഹം യു

ഓരോ പാനലും യു

സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബിൽ മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ നല്കുന്ന പുരസ്കാരവും ശ്രീ നരേന്ദ്രമോദി ഏറ്റുവാങ്ങും

ഇനിയും ആവശ്യമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്രത്തെ സമീപിക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരെ മഹാരാഷ്ട്ര ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി വിധി ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയും ജസ്റ്റീസുമായ ദീപക് ഗുപ്ത സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചിന്റേതാണ്

ചീഫ്ജസ്റ്റിസ് ഡി

പട്ടേലും ജസ്റ്റിസ് സി

തന്റെ താഴ്ന്ന സാമ്പത്തിക് നില പരിഗണിക്കാതെയാണ് ട്രിബ്യൂണൽ ഇത്രയ്യും വ്ലിയ തുക അടിച്ചേൽപ്പിച്ചതെന്ന് ഹർജ്ജിക്കാരൻ വാ്ദിച്ചു

എല്ലാത്തരം അക്കൌണ്ടുകൾക്കും ഈ ഉത്തരവ് ബാധകമെന്ന് ആർ

അതിനാൽ മറ്റ് നിർദ്ദേശങ്ങളോ നോട്ടീസോ ലഭിക്കും വരെ ബാങ്ക് ഇടപാടുകൾ തുടരുണമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട്ട്

വിശദാംശങ്ങളുമായി ഷീജ ഗണേഷ്

ഈ പദ്ധതി സംബന്ധിച്ച് ദേശീയ ആരോഗ്യ അതോറിട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

വെങ്കയ്യ നായിഡു ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കരുത് ഒരു ഭാഷയോടും വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വാര്യർ ആയുർവേദത്തിൽ ആധുനിക അറിവുകൾ സൂക്ഷ്മമായി സംയോജിപ്പിച്ച മഹദ് വ്യക്തിയാണെന്നും ഉപരാഷ്ട്രപതി ആസ്റ്റ്സ്മരിച്ചു

പളനിസ്വാമിയും നാളെ ചർച്ച നടത്തും പറമ്പിക്കുളം ആളിയാർ ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന നദീജല കരാറുകൾ സംബന്ധിച്ച് നാളെ തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യും

ആയുഷ്മാൻ ഭാരതിന്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു ചടങ്ങിലാണ് ഇക്കാര്യം അറിയിച്ചത്

അറിയിച്ചു

ജമ്മു കാശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം

ലാഹോർ റാവൽപിണ്ടി പെഷവാർ ഇസ്സാമാബാദ് ഉൾപ്പെടെ പാകിസ്ഥാന്റെ വടക്കൻ പ്രദേശങ്ങളിലെ നിരവധി നഗരങ്ങളെ ഭൂകമ്പം പിടിച്ചു കുലുക്കി ഭൂകമ്പത്തിൽ പാക് അധീന കശ്മീരിൽ കെട്ടിടം ഇടിഞ്ഞ് വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ സ്ത്രീകളും കുട്ടികളു മടക്കം അൻപതോളം പേരെ മിർസാപൂരിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു

സി പി എം

സി

ഈ മാസം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയിലേക്ക് മടങ്ങി വരുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു

സഖ്യത്തിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസും ശിവസേനാ അദ്ധ്യക്ഷൻ ഉദ്ദവ്താക്കറെയും ചേർന്ന് പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന ബിജെപി അദ്ധ്യക്ഷൻ ചന്ദ്രകാന്ത പാട്ടീൽ പറഞ്ഞു വിഷയം ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത്ഷായുമായി ചർച്ച ചെയ്യുന്നുവെന്നും മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

പാട്ടീൽ ആത്മവിശ്രൂർസ്ം പ്രകടിപ്പിച്ചു

സർവ്വകലാശാലകൾ സീനിയർ സെക്കൻ്ററി കൌൺസിൽ എൻ

യൂണിറ്റുകൾ എൻ

വോളന്റിയർമാർ എന്നിവരുടെ മികച്ച സംഭാവനകൾക്കായി എല്ലാവർഷവും യുവജനകാര്യമന്ത്രാലയമാണ് എൻ

അവാർഡ് നല്കി വരുന്നത്

എസ് പദ്ധതി ആരംഭിച്ചത് ഇത് എൻ

എസിന്റെ സുവർണ ജൂബിലി വർഷമാണ്

സൌദി അറേബ്യയിൽ നിന്നും തിരികെ എത്തിയ യൂസഫിനെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വച്ചാണ് പൊലീസ് അറസ്റ്റ് ചെയ്തത്